പ്രവർത്തകരായി സജീവമാകണമെന്ന് ബിജെപി എം പിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു

പ്രതിരോധ വ്യവസായവും സ്റ്റാർട്ട് അപ്പുകളും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും അമേരിക്കയും തീരുമാനിച്ചു

കാർഷിക സ്വർണ്ണ പണയ വായ്പ നിർത്തലാക്കുവാൻ കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി വി

ജെ

ഇവർക്കായിസംഘടിപ്പിച്ച അഭ്യാസ്വർഗ്ഗ എന്ന ദ്വിദിന് പ്രരിശീലന പരിപാടിഉദ്ഘാടനം ചെയ്യുകയായിരുന്നുഅദ്ദേഹം

ജെ

എന്നത് മൌലികമായ അസ്തിത്വമാണെന്നും പ്പില്ത്രത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതല്ലെന്നും ശ്രീമോദി പറഞ്ഞു ക്കുടുംബ് മാഹാത്മ്യമല്ല മറിച്ച് ബി ജെ പിയുടെ ആശയങ്ങളും ചിന്തകളുമാണ് ഈ നിലയിൽ വളരാൻ പാർട്ടിയെ സഹായിച്ചതെന്ന് ശ്രീ മോദിയെ ഉദ്ധരിച്ചു കൊണ്ട് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു പ്രായത്തിനുപരിയായി എക്കാലവും വിദ്യാർത്ഥികളായിരിക്കണമെന്നും പഠന രീതിതുടരണമെന്നും ശ്രീ

മാരോട് നിർദ്ദേശിച്ചു

ജെ

പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ എന്നിവരും ശില്പശാലയിൽ പങ്കെടുത്തു

ഹൈദരാബാദിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളിൽ സംബന്ധിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് തദ്ദേശീയമായി നിർമ്മിക്കാനായില്ലെങ്കിൽ മാത്രമേ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യൂ

ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഇക്കാരൃത്തിൽ പ്രധാന പങ്ക് വഹിക്കണമെന്ന് മന്ത്രി ആവശൃപ്പെട്ടു പ്രാദേശിക ആഗോളതലത്തിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാണ് ഇന്ത്യയുടെ പ്രതിരോധ നയം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ശ്രീ

രാജ്യത്തെ അഞ്ച് ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ആക്കുസ്ത്രിൽ പ്രതിരോധ മേഖല നിർണ്ണായക പങ്ക് വഹിക്കും

കൂടുതൽവിവരങ്ങളുമായി രഞ്ജിത്ത്

സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് ആകാശവാണിക്ക് നൽകിയഅഭിമുഖത്തിലാണ് ശ്രീ

കഴിഞ്ഞ വർഷങ്ങളിൽസ്ഥാപിക്കപ്പെട്ട ഏറ്റവും വിശ്വാസയോഗൃമായസ്ഥാപനം ആകാശവാണിയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അത് വിനോദത്തിന് വേണ്ടിമാത്രമല്ല

കൂടുതൽ എഫ് എം

ഇംഗ്ലീഷിലുള്ള അഭിമുഖം എഫ്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്നും അദ്ദേഹം മുഖ്യധാരാ രാഷ്ട്രീയ് നേതാക്കളോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചു

ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി ജമ്മുകശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് അധ്യക്ഷൻ ഡോ ഷാ ഫൈസൽ പീപ്പിൾസ് കോൺഫറൻസ് അധ്യക്ഷൻ സജാദ് ലോൺ മറ്റൊരു പീപ്പിൾസ് കോൺഫറൻസ് നേതാവ് ഇമ്രാൻ റാസ അൻസാരി എന്നിവരുമായി കഴിഞ്ഞ രാത്രി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണിത് തീർത്ഥയാത്ര തുടങ്ങിയവർ മടങ്ങിപ്പോകണമെന്ന് പൊലീസ് ആവശ്യപ്പെട്ടു

സംസ്ഥാനത്തെ സ്ഥിതി സംബന്ധിച്ച് പ്രധാനമൃത്ത് പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നും മുത്പൂർന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു

ബാഗ്നദി പൊലീസ് സ്റ്റേഷൻ പരിധിയിലെ സിതഗോത്ര ഗ്രാമത്തിൽ രാവിലെ ആറ് മണിക്കായിരുന്നു ഏറ്റുമുട്ടൽ തുടങ്ങിയത് നക്സൽ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ റിസർവ്വ് ഗാർഡ് ഛത്തീസ്ഗഢ് സായുധ പൊലീസ് ജില്ലാ പൊലീസ് സേന എന്നിവ ഛത്തീസ്ഗഢ് മഹാരാഷ്ട്ര അതിർത്തിയിൽ പരിശോധന നടത്തുകയായിരുന്നു

ഇന്ത്യ യു എസ് പ്രതിരോധ നയ സംഘത്തിന്റെ പതിനഞ്ചാമത് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായ പ്രതിരോധ വൃാപാരം വൃവസായം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ അടുത്തിടെയുണ്ടായ പുരോഗതിയും യോഗം വിലയിരുത്തി

സ്വർണ പണയത്തിന്മേലുള്ള കാർഷിക വായ്പകൾ നിർത്തിവയ്ക്കാനോ പരിമിതപ്പെടുത്തുന്നതിനോ വേണ്ടിയുള്ള ഏതെങ്കിലും ഉത്തരവോ നിർദ്ദേശമോ കേന്ദ്രഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന ഗവൺമെന്റിനോ എസ്

യ്ക്കോ ലഭിച്ചിട്ടില്ല

ഇത് സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു

ശ്രീറാമിന് എതിരെ പൊലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കാൻ സംസ്ഥാന പൊലീസ് മേധാവി ് നിർദേശം നൽകിയിട്ടുണ്ട്

തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച കെ എം ബഷീറിന്റെ ഭൌതികശരീരത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു

പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ മലപ്പുറം വാണിയന്നൂരിലേക്ക് കൊണ്ടുപോയി

ഇന്ത്യൻ സമയംഎട്ട് മണിക്കാണ് മത്സരം മത്സരം ആകാശവാണി തത്സമയം പ്രക്ഷേപണം ചെയ്യും

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

പുതിയ വിദ്യാഭ്യാസനയ്ക്കിന്റെ കരടുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയാണ് നടന്നത് തൃങ്ങളുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ എം പി മാർ കേന്ദ്ര മനുഷ്യ വിഭവ ശേഷി മന്ത്രിക്ക് എഴുതി നൽകി പാർലമെന്റ് മന്ദിരത്തിൽ വച്ചായിരുന്നു ചർച്ചകൾ നടന്നത്

പിമാരുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുമെന്ന് ശ്രീ

വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണം ലക്ഷ്യമിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജല ജല ദൌർലഭ്യമുള്ള ജില്ലകളിലെ ജല സംരക്ഷണവും മഴവെള്ള ശേഖരണവുമാണ് ഇതിൽ പ്രധാനം

കനത്ത മഴയിൽ ബാഗേശ്വർ ജില്ലയിലെ ഒരു വീട് ഭാഗികമായി തകർന്നു തനക്പൂർ പിതോരാഗാർ ദേശീയ പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി

ഇതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മുട്ടങ്ങും